എൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ തോൽപ്പിച്ചു വാർത്തകൾ വിശദമായി കേരളത്തിന്റെ ജനഹിതം ആർക്കൊപ്പമെന്ന് ഇന്നറിയാം മൂന്ന് മുന്നണികളുടെ അവകാശവാദങ്ങൾക്കും പ്രതീക്ഷകൾക്കുമൊപ്പം എക്സിറ്റ്പോളുകളുടെ ആധികാരികത അറിയാനും ഇനി മണിക്കൂറുകൾ മാത്രം ന്യൂസ് ഡസ്കിൽ നിന്ന് രജ്ന കെ ആസാദ് ദ്ദേ ഏപ്രിൽ ആറിന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ എട്ടിന് തുടങ്ങും ആദ്യം പോസ്റ്റൽ ബാലറ്റുകളും എട്ടരയോടെ വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകളും എണ്ണിത്തുടങ്ങും മലപ്പുറം ലോക്സഭാ സീറ്റിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലും ഇന്നാണ് വോട്ടെണ്ണലിന് മുന്നോടിയായ നടപടിക്രമങ്ങൾ പുലർച്ചെ അഞ്ചിന് തന്നെ ആരംഭിച്ചു ആറുമണിയോടെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നു വോട്ടെണ്ണലിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തശേഷമായിരിക്കും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ പോസ്റ്റൽ ബാലറ്റുകൾ തുറക്കുന്നത്

വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോംഗ് റൂം തുറക്കുന്നതും പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് രാവിലെ എട്ടുമണിവരെ ലഭിക്കുന്ന പോസ്റ്റൽ ബാലറ്റുകൾ സ്വീകരിക്കും അതിനുശേഷം കിട്ടുന്നവ മാറ്റിവെയ്ക്കും ഇന്നലെ തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ അണുമുക്തമാക്കിയിരുന്നു സ്ഥാനാർത്ഥികൾക്കും പാർട്ടി പ്രതിനിധികൾക്കും ഉൾപ്പെടെ വോട്ടെണ്ണൽ കേന്ദ്രത്തിലെത്തുന്ന എല്ലാവർക്കും കോവിഡ് മാനദണ്ഡങ്ങൾ നിർബന്ധമാണ്

രാവിലെ എട്ടര മുതൽ ഓരോ അര മണിക്കൂറിലും ഫലസൂചനകളും പ്രവണതകളും ഉൾപ്പെടുത്തി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ ഉണ്ടായിരിക്കും

റെറ കേരളം ഉൾപ്പെടെ നാല് സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും വോട്ടെണ്ണൽ ക്രമീകരണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെർച്വൽ യോഗത്തിൽ ഇന്നലെ അവലോകനം ചെയ്തു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുശീൽ ചന്ദ്രയുടെ നേതൃത്വത്തിലായിരുന്നു അവലോകനം എല്ലാ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പൂർണമായി പാലിക്കണമെന്ന് സുശ്ിൽ ചന്ദ്ര നിർദ്ദേശിച്ചു

വോട്ടെണ്ണൽ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ വിജയാഹ്ലാദ പ്രകടനങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരോധിച്ചിട്ടുണ്ട്

ദ്ദേ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിജയാഹ്ലാദങ്ങളും ആഘോഷങ്ങളും ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇത്തരം പരിപാടികൾ ഒഴിവാക്കുന്നതാവും സമൂഹത്തോട് പുലർത്താവുന്ന പ്രതിബദ്ധതയെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആഹ്ലാദ പ്രകടനങ്ങൾ നിരോധിച്ചിട്ടുണ്ട് കോവിഡ് മുൻനിർത്തി വാരാന്ത്യ നിയന്ത്രണങ്ങളും സംസ്ഥാനത്ത് കർശനമാക്കിയിട്ടുണ്ട് കോഴിക്കോട് റൂറൽ പൊലീസ് പരിധിയിൽ ഏഴുദിവസത്തേക്ക് ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ജില്ലാ കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ ഒരു കിലോമീറ്റർ പരിധിയിൽ ആൾക്കൂട്ടവും കടകൾ തുറക്കലും നിരോധിച്ചു കണ്ടെയ്ൻമെന്റ് ക്രിട്ടിക്കൽ കണ്ടെയൻമെന്റ് സോണുകളിൽ കടുത്ത നിയന്ത്രണങ്ങളുണ്ടാകും കോട്ടയം ജില്ലയിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ അധിക നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു

ദേദ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികൾ കോവിഡ് രോഗികൾക്കായി അൻപത് ശതമാനം കിടക്കകൾ മാറ്റിവെയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഗ്രാമപ്രദേശങ്ങളിലെ കോവിഡ് വ്യാപനം തടയുന്നതിന് വീട്ടമ്മമാരുടെയും സ്ത്രീകളുടെയും സേവനം വിനിയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലകളിൽ പ്രവർത്തിക്കുന്ന വനിതാ പൊലീസ് സ്റ്റേഷനുകൾ വനിതാ സെൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് മാർഗനിർദ്ദേശങ്ങളും ബോധവത്കരണവും നടത്തുന്നത് ക്വാറന്റീൻ ലംഘനങ്ങളും മാർഗ നിർദ്ദേശ ലംഘനങ്ങളും കണ്ടെത്തി പൊലീസിനെ അറിയിക്കാൻ വനിതകളെ സജ്ജമാക്കും

സാമൂഹിക അകലം പാലിക്കാത്ത തരത്തിൽ വിശ്വാസികൾ എത്തുന്നില്ലെന്ന് പൊലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം കൊടുത്തതായും മുഖ്യമന്ത്രി അറിയിച്ചു വാൽവ് ഘടിപ്പിച്ച മാസ്കുകൾ ഉപയോഗിക്കരുതെന്നും സർജിക്കൽ മാസ്കിന് മുകളിൽ തുണി മാസ്ക് ധരിക്കുന്നതായിരിക്കും കൂടുതൽ സുരക്ഷിതമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗബാധ

മെഡിക്കൽ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ സിലിണ്ടറുകളും നാളേക്കകം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൈമാറണമെന്ന് കലക്ടർ ഉത്തരവിട്ടു ദ്ദേ വയോധികർക്കും കിടപ്പുരോഗികൾക്കുമായി കോഴിക്കോട് കോർപ്പറേഷന്റെ സഞ്ചരിക്കുന്ന വാക്സിനേഷൻ വാഹനം ജില്ലാ കലക്ടർ ഫ്ളാഗ്ഓഫ് ചെയ്തു

ദേദ കോവിഡ് പ്രതിസന്ധി നേരിടുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർക്ക് സംസ്ഥാനങ്ങൾ മതിയായ സംരക്ഷണം നൽകണമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ആവശ്യപ്പെട്ടു കുട്ടികളുടെ അവസ്ഥ ശിശുക്ഷേമ സമിതികൾ കൃത്യമായി നിരീക്ഷിക്കണമെന്നും ആവശ്യമായ സംരക്ഷണം ഉറപ്പാക്കണമെന്നും അവർ നിർദ്ദേശിച്ചു

തുടരുന്ന കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് നടപടി

എൽ ക്രിക്കറ്റിൽ ഡൽഹിയിൽ ഇന്നലെ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിംഗ്സിനെ നാലുവിക്കറ്റിന് തോൽപ്പിച്ചു അവസാന പന്തിലാണ് അവർ വിജയലക്ഷ്യം മറികടന്നത് ഇന്ന് ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഡൽഹിയിൽ നേരിടും രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് കിംഗ്സ് ഡൽഹി ക്യാപ്പിറ്റൽസിനെ അഹമ്മദാബാദിലും നേരിടും ദേദ ജമ്മു കശ്മീരിൽ ഹിമപാതത്തിൽ മരിച്ച സൈനികൻ ചവറ സ്വദേശി എ ഷാനവാസിന്റെ ഭൌതികശരീരം നാട്ടിലെത്തിച്ചു ഇന്നലെ വൈകീട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹത്തിൽ സേനാംഗങ്ങൾ ആദരാജ്ഞലിയർപ്പിച്ചു

ദര മനോരമ ആഴ്ചപ്പതിപ്പ് ചീഫ് എഡിറ്ററും മലയാള മനോരമ പ്രിന്ററും പബ്ലിഷറും മുൻ മാനേജിംഗ് എഡിറ്ററുമായിരുന്ന തയ്യിൽ കണ്ടത്തിൽ മാമ്മൻ വർഗീസ് കോട്ടയത്ത് അന്തരിച്ചു

ദേദ ഭാരതീയ ജനസംഘത്തിന്റെ കണ്ണൂർ ജില്ലാ സംഘടനാ കാര്യദർശിയും ബി ജെ പി നേതാവുമായ തളിപ്പറമ്പ് പൂക്കോത്ത് തെരുവിലെ കെ സി കണ്ണന്റെ ദേഹവിയോഗത്തിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ അനുശോചിച്ചു നെയ്ത്ത് തൊഴിലാളിയായ കണ്ണൻ അടിയന്തരാവസ്ഥ കാലത്ത് മാസങ്ങളോളം ജയിൽവാസം അനുഭവിച്ചിരുന്നു ദേദ കോയമ്പത്തൂർ കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് സർവീസുകൾ ഇന്നും നാളെയും പാലക്കാടിനും കോയമ്പത്തൂരിനും ഇടയിൽ ഉണ്ടാവില്ലെന്ന് റെയിൽവെ അറിയിച്ചു പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് വൈകീട്ട് മൂന്നരയ്ക്ക് ട്രെയിൻ കണ്ണൂരിലേക്ക് യാത്ര തിരിക്കും

ദേദ കോവിഡ് രണ്ടാംതരംഗത്തിന്റെ സാഹചര്യത്തിൽ കാടാമ്പുഴ ക്ഷേത്രത്തിൽ മറ്റന്നാൾ മുതൽ വഴിപാടുകളും ഭക്തജന പ്രവേശനവും ഉണ്ടാവില്ലെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു ദേദ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീംകോടതിയുടെ വേനലവധി ഈമാസം പത്തിന് തുടങ്ങും